ഉത്തരാഖണ്ഡിൽ ഇന്ന് ആറ് വൻ പദ്ധതികൾക്ക് തുടക്കം കുറിക്കും

വാങ്ങാൻ തീരുമാനം

കേരളത്തിൽ കോവിഡ് വ്യാപനം രൂക്ഷമാകുന്നു സ്ഥിതി വിലയിരുത്താൻ മുഖ്യമന്ത്രി ഇന്ന് സർവകക്ഷിയോഗം വിളിച്ചു

എൽ ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിന് വിജയം

ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന്റെ ആദ്യ റൌണ്ടിൽ ജയിച്ച് റഫേൽ നദാൽ

വീഡിയോ കോൺഫറൻസിലൂടെയാണ് പരിപാടി

ഡി ശേഷിയുള്ള പ്ലാന്റിന്റെ നവീകരണവും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും

മലിനജല ശുദ്ധീകരണ പ്പാന്റിന്റെ നിർമ്മാണ ഉദ്ഘാടനവും പ്രധാനമന്തി നിർവ്വഹിക്കും ജഗ് ജിത് പൂർ പദ്ധതി പൊതു സ്വകാര്യ പങ്കാളിത്തതോടെ ഹൈബ്രിഡ് ആനിറ്റി മോഡിൽ നടപ്പാക്കുന്ന ആദ്യ പദ്ധതിയാണ്

മലിനജല ശുദ്ധീകരണ പ്പാന്റും ശ്രീ

ഗംഗാ നദിയുടെ ശുദ്ധീകരണത്തിൽ ഈ പ്താന്റുകൾ സുപ്രധാന പങ്ക് വഹിക്കും കോവിഡ് വാക്സിൻ വികസിപ്പിക്കുന്നതിൽ സമാന ചിന്താഗതിയുള്ള രാജ്യങ്ങൾ സഹ്ക്കരിക്കുന്നത് മഹാമാരിയെ നേരിടാൻ സഹായകമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഡെൻമാർക്ക് പ്രക്ടാന്മന്ത്രി മെറ്റെ ഫ്രെഡറിക ്സണുമായി ഇന്നലെ നടത്തിയ് വെർച്ചൽ ഉഭയകക്ഷി ഉച്ചകോടിയിലാണ് പ്രധാന്റുമ്പ്തിയുടെ പരാമർശം ഇന്ത്യ ഡെൻമാർക്ക് ബസ്ടം മെച്ചപ്പെടുത്താനും ആഗോള വെല്ലുവിളികളിൽ പൊതു സമീപനം സ്വീകരിക്കാനും ഉച്ചകോടി വഴിയൊരുക്കുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ശ്രീ നരേന്ദ്ര മോദി പറഞ്ഞു ഇന്തോ ഡെൻമാർക്ക് സഹകരണം മെച്ചപ്പെടുത്തുന്നത് സംബന്ധിച്ച് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇരുപക്ഷവും വിശദമായി ചർച്ച ചെയ്തിരുന്നു ഇന്നലത്തെ ഉച്ചകോടിയിലൂടെ അന്നത്തെ പരിഗണനാ വിഷയങ്ങൾക്ക് പുതിയ ദിശയും വേഗതയും കൈവരുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

ആഭ്യന്തര വിദേശ നിർമ്മാതാക്കളിൽ നിന്നാകും പ്രതിരോധ സാമഗ്രികൾ വാങ്ങുക

മൂന്ന് സേനാ വിഭാഗങ്ങളെയും ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിരോധ ഉപകരണങ്ങളാണ് വാങ്ങുന്നത്

ലേ ഹിൽ കൌൺസിൽ തെരഞ്ഞെടുപ്പ് ബഹിഷ്ക്കരിക്കാനുള്ള ആഹ്വാനത്തിന്റെ പശ്ചാത്തലത്തിലാണ് സന്ദർശനം ഭരണഘടനാ ്പരമായ സുരക്ഷ ലഡാക്കിന്റെ വികസനം തുടങ്ങിയ കാര്യങ്ങളിൽ ആഭ്യന്തരമന്ത്രി അമിത് ഷാ നൽകിയ ഉറപ്പുകൾ ശ്രീ

തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്ത് ജനാധിപത്യ പ്രക്രിയയെ ശക്തിപ്പെടുത്താൻ ആഭ്യന്തര സഹമന്ത്രി ജനങ്ങളോട് ആവശ്യപ്പെട്ടു

മാറ്റിവച്ച തവണകൾ സംബന്ധിച്ച വിഷയ ത്തിൽ രേഖാമൂലം തീരുമാനം എടുക്കണമെന്നും കക്ഷികളെ സത്യവാങ്മൂലമായി ഇക്കാര്യം അറിയിക്കണമെന്നും സുപ്രീംകോടതി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു

അവികസിത വികസ്വര രാജ്യങ്ങളും വികസിത രാജ്യങ്ങളും തമ്മിൽ പരിശോധനകളിൽ നിലനിൽക്കുന്ന അന്തരം പരിഹരിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം ലോകാരോഗൃ സംഘടനയുടെ കണക്കനുസരിച്ച് ആന്റിജൻ അടിസ്ഥാന മാക്കിയുള്ള ഒരു ദ്രുത പരിശോധനയ്ക്ക് അഞ്ച് അമേരിക്കൻ ഡോളർ ചെലവ് വരും

സമ്പന്ന രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന പി സി ആർ പരിശോധനകൾ പ്രായോഗികമല്ലാത്ത പ്രദേശങ്ങളിൽ രോഗനിർണയത്തിനായാണ് ആന്റിജൻ അടിസ്ഥാനമാക്കിയുള്ള ദ്രുത പരിശോധനയ്ക്ക് ലോകാരോഗൃ സംഘടന തയ്യറെടുക്കുന്നത് വൈറസിന്റെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന പ്രോട്ടീനുകളുടെ സാന്നിധ്യം വഴിയാണ് ദ്രുത പരിശോധനകളിലൂടെ രോഗനിർണ്ണയം നടത്തുന്നത് വേഗതയേറിയതാണെങ്കിലും പി സി ആർ പരിശോധനകളോളം കൃത്യതയില്ലാത്തവയാണ് ആന്റിജൻ പരിശോധനകൾ പരിശോധനകൾക്ക് പ്രത്യേക ലാബ് ഉപകരണങ്ങളും രാസവസ്തുക്കളും ആവശ്യമാണ്

സി

ന്യൂസ് ഡെസ്ക് ആകാശവാണി

വലിയ്ക്ക്ക്രോതിലുള്ള രോഗവ്യാപനം ഉണ്ടാകുമെന്ന ആശങ്ക നിലനിൽക്കൂന്നതായും മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളോട് പറഞ്ഞു

അടച്ചുപൂട്ടൽ നിയന്ത്രണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചാവിഷയമാകും

എൽ ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിന് വിജയം സൂപ്പർ ഓവറിൽ എട്ട് റൺസ് ലക്ഷ്യം വച്ച് ഇറങ്ങിയ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ അവസാന പന്തിൽ ജയം സ്വന്തമാക്കുകയായിരുന്നു റോയൽ ചലഞ്ചേഴ്സിന് വേണ്ടി എ ബി

ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഇന്ത്യൻസിന് വെറും ഏഴ് റൺസ്ട് മാത്രമാണ് എടുക്കാനായത്

നേരിട്ടുള്ള സെ്റ്റുകൾക്ക് ബലാറൂസിന്റെ ഇഗോർ ഗെരാസിമോവിനെയാണ് നദാൽ പരാജയപ്പെടുത്തിയത്

മറ്റൊരു മത്സരത്തിൽ പുരുഷ സിംഗിൾസിൽ എ

വനിതാ സിംഗിൾസിൽ സെറീന വിലൃംസ് ജി

ഇംഫാൽ ചെന്നൈ റാഞ്ചി എന്നിവിടങ്ങളിലാണ് ശാഖകൾ ആരംഭിക്കുന്നത്